ഏതു സാഹചരൃവും നേരിടാൻ വ്യോമസേന സജ്ജമാണെന്ന് എയർചീഫ്മാർഷൽ രാകേഷ്കുമാർ സിംഗ് ബദൌരിയ

കോർപ്പറേറ്റ് നികുതിട് ഇളവിന്റെ പശ്ചാത്തലത്തിൽ ധനസ്ഥിതി മെച്ചപ്പെടുത്താനു്ള്ള ഗവണ്മെന്റ് നടപടികളിൽ സംശയിക്കേണ്ടതിട്ട്ണെന്ന് റിസർവ്വ് ബാങ്ക് ഗവർണർ

മരട് ഫ്ളാറ്റ് ഒഴിയാൻ ഒരാഴ്ച കൂടി സമയം അനുവദിക്കണമെന്ന ഫ്ളാറ്റുടമകളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി

കൂടുതൽ വിവരങ്ങളുമായി ന്ദർദ്ദ്മോഹൻ

ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരുക്കുന്നുണ്ട് സംഭവത്തിൽ ആറ് വ്യോമസേന ഉദ്യോഗസ്ഥരും ഒരു സാധാരണ പൌരനും കൊല്ലപ്പെട്ടിരുന്നു ബലാകോട്ടിൽ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയ ശേഷം തൊട്ടടുത്ത ദിവസം നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ പരസ്പരം വെടിയുതിർക്കവെയായിരുന്നു ഇന്ത്യൻ ഹെലികോപ്റ്റർ അബദ്ധത്തിൽ ഇന്ത്യൻ സേനയുടെ തന്നെ മിസൈലേറ്റുവീണത്

എന്നാൽ ഭാവിയിലേക്കായി വ്യോമസേനയെ നവീകരിച്ച് ആധുനികവത്ക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യോമസേന മേധാവി വ്യക്തമാക്കി ന്യൂസ്ഡസ്ക് ആകാശവാണി

ദൈമീസ് ധനനയ പ്രഖ്യാപനത്തിന് ശേഷം മുംബൈയിൽ വാർത്ത്രാസ്മ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുമാന്ം ഉയർത്താൻ ഗവൺമെന്റിന് പല മാർഗ്ഗങ്ങളുണ്ട്

പഞ്ചാബ് ആന്റ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച ചോദ്യത്തിന് ഇതിൽ ആശങ്കയ്ക്കടിസ്ഥാനമില്ലെന്നും ഒരു ബാങ്കിൽ തിരിമറിവച്ച് രാജ്യത്ത് മറ്റ് ബാങ്കുകളെ അളക്കാനാവില്ലെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു

ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ തുർക്കി കശ്മീർ വിഷയം ഉയർത്തിയത് സംബന്ധിച്ച് കശ്മീർ ഇന്ത്യയുട്ടി ് ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്ട്കുമാർ പറഞ്ഞു

മലേഷ്യൻ പ്രധാനമന്ത്രി കശ്മീർ വിഷയത്തിൽ നടത്തിയ പരാമർശം അത്ഭുതപ്പെടുത്തിയെന്നും ശ്രീ

കശ്മീർ കാര്യത്തിൽ നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യപ്തമായ നിലപാട് വെളിപ്പെടുത്തിയിട്ടുണ്ട്

ലക്നൌ ഡൽഹി റൂട്ടിലായിരിക്കും തേജസ് എക്സ്പ്രസ് സർവീസ് നടത്തുക യാത്രികർക്ക് വേഗതയേറിയതും സുഖകരവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന തേജസ് ട്രെയിൻ ആഴ്ചയിൽ ആറ് ദിവസം സർവ്വീസ് നടത്തും

ന്യൂഡൽഹിയിൽ നിന്നും ലോഹിയാൻ ഖാസ് വരെ പോകുന്ന ട്രെയിൻ സുൽത്താൻപൂർ ലോധിയിലൂടെയാണ് കടന്നു പോവുക കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദലിന്റെ അപേക്ഷപ്രകാരമാണ് ട്രെയിനിന്റെ പേര് മാറ്റിയത്

എക്സ് മീഡിയ കേസിൽ മുൻകേന്ദ്ര മന്ത്രി ചിദംബരത്തിന്റെ ജാമ്യപേക്ഷയിൽ മറുപടി നൽകാൻ പി സുപ്രീംകോടതി സി ബി ഐ യോട് ആവശ്യപ്പെട്ടു

ഇതിനെതിരെ ചിദംബരം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

മുംബെയിൽ നാലാമത് ദ്വൈമാസ ധനനയം സംബന്ധിച്ച വിവരങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയപ്പോഴാണ് ഈ വിവരങ്ങൾ വെളിപ്പെട്ടത്

പുതിയ പ്രഖ്യാപനത്തോടെ ഭവന വാഹനവായ്പകളുടെ പലിശ കുറയും തുടർച്ചയായി അഞ്ചാം തവണയാണ് റിസർവ് ബാങ്ക് നിരക്കുകളിൽ കുറവ് വരുത്തുന്നത്

ഫ്ളാറ്റ് പൊളിക്കണമെന്ന ഉത്തരവ് അന്തിമമാണെന്നും മണിക്കൂർ പോലും സമയം നീട്ടിനൽകാനാകില്ലെന്നും ഒരു ജസ്റ്റിസ് അരുൺ മിശ്ര പ്രതികരിച്ചു

എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും ഇ വിസ ലഭ്യമാക്കാനുള്ള സംവിധാനം വികസിപ്പിച്ച് വരികയാണെന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി അറിയിച്ചു

മുംബൈ മെട്രോയുടെ കാർ ഷെഡ് സ്ഥാപിക്കുന്നതിനായാണ് ആരെ പ്രദേശത്തിലെ മരങ്ങൾ മുറിക്കാൻ അനുമതി നല്കിയത്

ഗുപ്ത പറഞ്ഞു

ജമ്മുവിലും കാശ്മീരിലും ഓരോ കേന്ദ്രം വീതം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗവർണറുടെ ഉപദേശകൻ ശ്രീനഗറിൽ പറഞ്ഞു

മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ അധ്യക്ഷത്യിൽ നടന്ന മന്ത്രിസഭ യോഗത്തിലാണ് തീരുമാനുമുണ്ടായത് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി ആദ്യം മൂന്ന് വർഷം ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട അനുമതികളിൽ നിന്ന് ഇവയെ ഒഴിവാക്കിയിട്ടുണ്ട് ഇക്കാലയളവിന് ശേഷം ആറ് മാസത്തിനുള്ളിൽ അനുമതികൾ നേടിയാൽ മതിയാകും

എസ് ആർ

ഡ്രൈവർമാരുടെ ക്ഷാമം മൂലം ദീർഘദൂര സർവ്വീസുകൾ അടക്കം നിരവധി ട്രിപ്പുകൾ മുടങ്ങി